കേന്ദ്രങ്ങൾ വഴി അറിയിക്കാൻ ദേശീയ മനുഷ്യാവകാശ കമ്മിഷൻ ടോൾ ഫ്രീ നമ്പർ പുറത്തിറക്കി

രേഖപ്പെടുത്തി മുസ്തീം വനിതകളുടെ വിവാഹ അവകാശ സംരക്ഷണം ഉറപ്പു നൽകുന്ന ബിൽ മുത്തലാഖ് ചൊല്ലുന്നത് മൂന്ന് വർഷം വരെ ജയിൽ ശിക്ഷ ലഭിക്കുന്ന ക്രിമിനൽ കുറ്റമാക്കി ബില്ല് ഒരു മതത്തിനോ സമുദായത്തിനോ എതിരല്ലെന്നും സ്ത്രീകൾക്ക് നീതി ലഭ്യമാക്കുകയാണ് ലക്ഷ്യമെന്നും നിയമമന്ത്രി രവിശങ്കർ പ്രസാദ് ലോക്സഭയിൽ പറഞ്ഞു ബിൽ സെലക്ട് കമ്മിറ്റിക്ക് വിടണമെന്ന പ്രതിപക്ഷ ആവശ്യം നിയമമന്ത്രി അംഗീകരിച്ചില്ല

മന്ത്രിയുടെ വിശദീകരണത്തിൽ തൃപ്തരാകാതെ പ്രതിപക്ഷ പാർട്ടികളായ കോൺഗ്രസ് ആർ

പി എൻ സി പി തുടങ്ങിയ പാർട്ടികൾ സഭയിൽ നിന്ന് ഇറങ്ങിപ്പോയി ഭരണഘടനാ വിഷയമായതിനാൽ കൂടുതൽ പഠനം ആവശ്യമാണെന്ന് കോൺഗ്രസ് നേതാവ് മല്ലികാർജ്ജുൻ ഖാർഗെ ആവശ്യപ്പെട്ടു

എം സി എ ഐ എ ഡി എം കെ സി

എം ആർ

ഡി എസ് പി മുതലായ പാർട്ടികൾ കോൺഗ്രസ് നിലപാടിനെ അനുകൂലിച്ചു

ഇന്ത്യയും ഭൂട്ടാനും തമ്മിലുളള നയതന്ത്ര ബന്ധ്ത്തിന്റെ സുവർണ ജൂബിലി വർഷത്തിലാണ് ഭൂട്ടാൻ പ്രധാനമന്ത്രിയുടെ സന്ദർശനം ഇന്ന് രാഷ്ട്രപതി ഭവനിൽ അദ്ദേഹത്തിന് ഔപചാരിക സ്വീകരണം നൽകും രാഷ്ട്രപതി രാംനാഥ് കോവിന്ദ് ഉപരാഷ്ട്രപതി എം വെങ്കയ്യനായിഡു എന്നിവരെയും ഡോ

ധനമന്ത്രി അരുൺജെയ്റ്റ്ലി വാണിജ്യമന്ത്രി സുരേഷ് പ്രഭു ഊർജ്ജമന്ത്രി ആർ

സിങ് എന്നിവരും ഭൂട്ടാൻ പ്രധാനമന്ത്രിയുമായി കൂടിക്കാഴ്ച നടത്തും

ഉത്തർപ്രദേശ് കർണ്ണാടക ആന്ധ്രാപ്രദേശ് ഒഡിഷ ഗുജറാത്ത് എന്നിവയാണ് പുതിയ തീരുമാനപ്രകാരം ഭവനങ്ങൾ നിലവിൽ വരുന്ന അഞ്ച് സംസ്ഥാനങ്ങൾ

അഡോപ്റ്റ് എ ഹെറിറ്റേജ് പദ്ധതിയിൽ ഉൾപ്പെടുത്തിയാണ് സാങ്കേതികവിദ്യയിൽ അധിഷ്ഠിതമായ പുതിയ ആപ്തിക്കേഷൻ പുറത്തിറക്കുന്നത് രാജസ്ഥാനിലെ അമേർകോട്ട അസ്സമിലെ കാസിരംഗ നാഷണൽ പാർക്ക് ഗോവയിലെ കൊളാവാ ബീച്ച് കേരളത്തിലെ കുമരകം ബീഹാറിലെ മഹാബോധി ക്ഷേത്രം എന്നിവ സന്ദർശിക്കുന്നവർക്ക് പ്രദേശത്തിന്റെ പ്രാധാനൃവും മറ്റ് സവിശേഷതകളും ഉൾപ്പെടെയുള്ളവ ഈ ആപ്പ് വഴി ലഭ്യമാകും

ആർബിഐ ഗവർണ്ണറായി അധീക്ടാര്മേറ്റതിനു ശേഷമുള്ള ശക്തികാന്തദാസിന്റെ മൂന്നാമത്തെ ചർച്ചയായിരുന്നു ഇന്നലെ മുംബൈയിൽ നടന്നത് പൊതുമേഖീലയിലെ ബാങ്ക് പ്രതിനിധികളുമായിട്ടായിരുന്നു ആദ്യ ര്ണ്ട് ചർച്ചകൾ പണലഭൃതയും ചെറുകിട ഇടത്തരം വ്യാപാരിങ്ങൾക്ക് വായ്പാലഭൃതയും യോഗം ചർച്ച ചെയ്തു

ഹിന്ദിയിലും ഇംഗ്ലീഷിലും നൽകുന്ന അറിയിപ്പുകൾക്കു പുറമേയാണ് ഇത് നൽകേണ്ടതെന്ന് നിർദ്ദേശത്തിൽ പറയുന്നു ഇതുകൂടാതെ വിമാനം ചരിത്രപ്രധാന കേന്ദ്രങ്ങളിൽ കൂടി കടന്നു പോകുമ്പോൾ ഇവയെ സംബന്ധിച്ച അറിയിപ്പും പൈലറ്റുമാർക്ക് നൽകാമെന്നും ഡിജിസിഎയുടെ അറിയിപ്പിൽ വൃക്തമാക്കുന്നു

പദ്ധതിക്കുള്ള ഫണ്ടിന് ദേശീയ അന്തർദേശീയ ധനകാര്യ സ്ഥാപനങ്ങളുടെ സഹായം തേടാൻ മുംബൈ മെട്രോ വികസന അതോറിറ്റിക്ക് ഇന്നലെ ചേർന്ന മന്ത്രിസഭാ യോഗം അനുമതി നൽകിയതായി മുഖൃമന്ത്രിയുടെ ഓഫീസിലെ ഒരു ഉദ്യോഗസ്ഥൻ അറിയിച്ചു നടപ്പു വർഷത്തിന്റെ തുടക്കത്തിലാണ് ഈ പദ്ധതിക്ക് ഗവൺമെന്റ് അനുമതി നൽകിയത്

തീപിടിത്തത്തിന്റെ കാരണം അറിവായിട്ടില്ല

ഇന്ത്യയിലെ തീവ്രവാദ പ്രവർത്തനങ്ങൾക്ക് ് പാകിസ്ഥാന്റെ പിന്തുണയുണ്ടെന്ന് വിദേശകാര്യമന്ത്രാലയം പാക് ഹൈക്കമ്മീഷണറെ അറിയിച്ചു അതിർത്തി കടന്നുള്ള തീവ്രവാദ പ്രവർത്തനങ്ങൾ അവസാനിപ്പിക്കണമെന്ന് പാകിസ്ഥാനോട് ഇന്ത്യ വീണ്ടും ആവശ്യപ്പെട്ടു

വിശദാംശങ്ങളുമായി പ്രിയ

എൽ ദത്തുവാണ് ടോൾ ഫ്രീ നമ്പർ പുറത്തിറക്കിയത്

സമീപഭാവിയിൽ തന്നെ രാജ്യത്തെ എല്ലാ സിഎസ്സി കേന്ദ്രങ്ങളിലും ഈ സൌകരൃം ലഭ്യമാക്കുമെന്ന് കമ്മിഷൻ വൃത്തങ്ങൾ അറിയിച്ചു പരാതികൾ കമ്മിഷനെ അറിയിക്കാൻ നിലവിലുള്ള സേവനങ്ങൾക്ക് പുറമെയാണ് ടോൾ ഫ്രീ നമ്പർ സംവിധാനം കൂടി ഏർപ്പെടുത്തുന്നത്

പുക ഉയർന്നതിനെ തുടർന്ന് ട്രെയിൻ തൊട്ടടുത്ത സ്റ്റേഷനിൽ നിർത്തി എല്ലാ യാത്രക്കാരെയും സുരക്ഷിതമായി ട്രെയിനിൽ നിന്ന് ഒഴിപ്പിച്ചതായി മെട്രോ റെയിൽ പി ആർ ഒ ഇന്ദ്രാണി ബാനർജി അറിയിച്ചു

വോട്ടെടൂപ്പിന്റെ സ്ഥകാരൃത നിലന്നീർത്തുന്നതിന്റെ ഭാഗമായി പോളിങ് ബൂത്തുകൾക്കുള്ളിലുള്ള ദൃശ്യൂങ്ങൾ പകർത്താൻ അനുവദിക്കില്ലെന്നും കമ്മീഷൻ വൃക്തമാക്കിയിട്ടുണ്ട്

സൌദി ടിവി അവതാരകനായ തുർക്കി ഷബനെഹ് ആയിരിക്കും മാധ്യമകാരൃങ്ങൾക്കായുള്ള പുതിയ മന്ത്രി സൌദി മാധ്യമപ്രവർത്തകൻ ജമാൽ ഖഷോഗിയുടെ മരണത്തെ തുടർന്നാണ് നടപടി

എ

സിറിയയെ അറബ് ശൃംഖലയിലേക്ക് തിരികെ കൊണ്ടുവരാനുള്ള പുതിയ ശ്രമത്തിന്റെ ഭാഗമായാണ് യു എ ഇ എംബസി ഇവിടെ പ്രവർത്തനം പുനരാരംഭിച്ചതെന്ന് കരുതുന്നു

ചേതേശ്വർ പൂജാര നേടിയ സെഞ്ചുറിയാണ് ഇന്ത്യയെ കൂറ്റൻ സ്കോറിൽ എത്തിച്ചത്

ഓസീസ് പര്യ്ടനത്തിലെ പൂജാരയുടെ രണ്ടാം സെഞ്ചുറിയാണിത്

ഇന്ത്യയ്ക്ക് വേണ്ടി അരങ്ങേറ്റം കുറിച്ച ഓപ്പണർ മായങ്ക് അഗർവാൾ അർധ സെഞ്ചുറി നേടിയിരുന്നു

വിപുലമായ സന്നാഹങ്ങളാണ് ഇക്കൂറി ഗ്വൺമെന്റ് ഒരുക്കിയിട്ടുള്ളതെന്നും മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നും കുംഭമേളയിൽ പങ്കെടുക്കുന്നവർക്ക് എല്ലാ സ്ജകർ്യങ്ങളും ഒരുക്കിയിട്ടുണ്ടെന്നും മന്ത്രി അറിയിച്ചു

ഏകഭാരതം ശ്രേഷ്ഠഭാരതം എന്ന രാഷ്ട്ര സങ്കല്പത്തിന്റെ ഉത്തമ ഉദാഹരണമാണ് കുംഭമേളയെന്ന് മന്ത്രി ഡോ മഹേന്ദ്രസിംഗ് പറഞ്ഞു